അഞ്ച് ജില്ലകളിലും ആലപ്പുഴ

ബെൽജിയത്തെ തോല്പി ച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന് രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ നേരിടും

ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് അഞ്ച് ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് ജില്ലാകലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കുട്ടനാട് ചേർത്തല താലൂക്കുകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു

കോട്ടയം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾക്കാണ് അവധി അംഗനവാടികൾക്കും അവധി ബാധകമാണ് പകരം മറ്റൊരുദിവസം പ്രവർത്തിക്കണമെന്ന് ജില്ലാകലക്ടർ അറിയിച്ചു എറണാ കുളം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും സി ബി എസ് ഇ ഐ സി എസ് ഇ ഐ എസ് ഇ സ്കൂളുകൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമാണ് സർവകലാശാലാ പരീക്ഷകൾക്ക് അവധി ബാധ കമല്ലെന്നും കലക്ടർ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ അംഗൻവാടി മുതൽ ഹയർ സെക്കന്ററി തലം വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്നും അവധി പ്രഖ്യാപിച്ചു കോളേജുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും ഇടുക്കി വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേ ജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി അംഗൻവാടികൾക്കും അവധി ബാധകമാണ്

കോഴിക്കോട്ട് ജില്ലയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ യു

ജില്ലയിലെ മലയോരമേഖലയിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കല ക്ടർ പറഞ്ഞു രാത്രിസമയത്ത് മലയോരമേഖലയിലേക്ക് യാത്ര പരിമിത പ്പെടുത്തണം പുഴകളിലും ചാലുകളിലും വെള്ളക്കെട്ടുകളിലും മഴയത്ത് ഇറങ്ങരുതെന്ന് കലക്ടർ പറഞ്ഞു

കക്കയം ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഏതുസമയവും തുറക്കാമെന്ന് അധികൃതർ അറിയിച്ചു കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണ മെന്നും അധികൃതർ പറഞ്ഞു ് ് ് ് ് ് കണ്ണൂർ ജില്ലയിൽ മണ്ണിടിഞ്ഞും മരം കടപുഴകിയും പലയി ടത്തും ഗതാഗതം തടസ്സപ്പെട്ടു

മലയോര ഹൈവേയിൽപ്പെട്ട തേർത്തല്ലിയിലും പേരാവൂർ നെടു മ്പൊയിൽ റൂട്ടിലും മണ്ണിടിഞ്ഞു

പാലക്കാട് ജില്ലയിലെ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പാല ക്കാടിന്റെ കിഴക്കൻ മേഖലയിൽ നൂറോളം ഹെക്ട്ർ നെൽകൃഷി വെള്ള ത്തിനടിയിലായി പത്തനംതിട്ട ജില്ലയിലെ പമ്പ അച്ചൻകോവിൽ മണിമല നദി കളിൽ ജലനിരപ്പ് ഉയർന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷ ണിയിലാണ് മഴക്കൊപ്പമുണ്ടായ കാറ്റിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി ശബരിഗിരി വൈദ്യുത പദ്ധതിയുടെ മൂഴിയാർ ഡാമിന്റെ ഷട്ട റുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്നും കക്കട്ടാറിന്റെ തീരങ്ങളിൽ താമ സിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പത്തനംതിട്ട ജില്ലാ കലക്ടർ അറി യിച്ചു ഇടുക്കി ജില്ലയിൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ജില്ലയിലെ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട് ദേശീയ സംസ്ഥാന പാതക ളിലും ഗ്രാമീണ റോഡുകളിലും മണ്ണിടിച്ചിലുണ്ടായി

ഇനിയും മണ്ണിടിച്ചിലിന് സാധൃതയുള്ളതിനാൽ മലയോരമേഖല യിലുള്ളവർ രാത്രിയാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാകലക്ടർ അഭ്യർത്ഥിച്ചു

തുക രണ്ടാഴ്ചയ്ക്കകം സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയിൽ സമർപ്പിക്കാൻ ജസ്റ്റിസുമാരായ എം

ലോക്കൂർ ദീപക് ഗുപ്ത എന്നിവരടങ്ങിയ ബഞ്ച് ഉത്തരവിൽ അറി യിച്ചു ഈ തുക ബാലാവകാശ പ്രവർത്തനങ്ങൾക്കുവേണ്ടി ഉപയോഗി ക്കണമെന്നും കോടതി പറഞ്ഞു നിയമങ്ങൾ ഇനിയും നടപ്പാക്കിയില്ലെ ങ്കിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ വിളിപ്പിക്കുമെന്നും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ഖരമാലിന്യ പ്രശ്നങ്ങളെകുറിച്ച് സമർപ്പിച്ച ഹർജികളിൽ വാദം കേൾക്കവെ സുപ്രീം കോടതി അറിയിച്ചു രാജ്യത്തെ നിയമങ്ങൾ എന്തുകൊണ്ട് കേരളത്തിന് ബാധകല്ലെന്ന് ചീഫ് സെക്രട്ടറി കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും ഇക്കാരൃത്തിൽ സംസ്ഥാന ത്തിന്റെ നയം അടുത്തമാസം ഏഴിനകം സമർപ്പിക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു

ഇത് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും എതിരാണെന്ന് പാർട്ടി വക്താവ് അഭിഷേക് സിംഗ്വി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇതോടെ ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ എണ്ണം ആറായി

കൂടുംബക്ഷേം മനുഷ്യാവകാശമാണ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണസന്ദേശം ഇതോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്

ആദ്യസെമിയിൽ ബെൽജിയത്തെ മറുപ്പടിയില്ലാത്ത ഒരുഗോളിന് കീഴ ടക്കിയാണ് ഫ്രാൻസ് ഫൈനലിലെത്തിയത്

രണ്ടാമത് നാവിക ഇന്നവേഷൻ പ്രദർശനം ഇന്ന് കൊച്ചി നാവിക കേന്ദ്രത്തിൽ ആരംഭിക്കും ദക്ഷിണ നാവിക കമാന്റ് മേധാവി വൈസ് അഡ്മിറൽ എ ആർ കാർവെ ഉദ്ഘാടനം ചെയ്യും

രേഖപ്പെടുത്താൻ സിവിൽസപ്പൈസ് ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക മൊബൈൽ ഫോൺ നമ്പർ നൽകി

മൊബൈൽ സിമ്മിന്റെ കൈമാറ്റം തിരുവനന്തപു രത്ത് സിവിൽ സപ്ലൈസ് കമ്മീഷണർ മിനി ആന്റണിക്ക് നൽകി മന്ത്രി പി തിലോത്തമൻ നിർവ്വഹിച്ചു

വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പ്രൊഫസ്റ്റർ സി രവീന്ദ്രനാഥ് ചെങ്ങന്നൂരിൽ പറഞ്ഞു

പി യു പി ക്ലാസ് മുറികൾ ഡിജിറ്റലാ ക്കാൻ എം

എ ഫണ്ടുകൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

കാരത്തിന്റെ കൂമ്പാരമാകണമെന്നും സ്പീക്കർ പി

കാലിക്കറ്റ് സർവകലാശാല എൻ